ഉപരാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ കോട്ടക്കൽ ആര്യവൈദ്യ ശാലാ സ്ഥാപകൻ പി

വെങ്കയ്യനായിഡു ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെര ഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുട ക്കം

ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര കാലാവസ്ഥാ ആക്ഷൻ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെട്രോളിയം ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ ലോകജനത സ്വഭാവപരമായ മാറ്റം വരുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വൃതിയാനവും ആഗോള താപനവും നേരിടാൻ പ്രായോഗിക സമീപനം അവതരിപ്പിക്കാനും മാർഗ രേഖ കൊണ്ടു വരാനുമാണ് ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കുന്നതെന്ന് പ്രധാനമന്തി വ്യക്തമാക്കി ഒരു ടൺ പ്രസംഗത്തേക്കാൾ വിലമതിക്കുന്നതാണ് ഒരു ഒരു ഔൺസ് പ്രവർത്തനമെന്നും പ്രധാനമന്ത്രി ന്യൂയോർക്കിലെ ഉച്ചകോടിയിൽ പറഞ്ഞു

പെട്രോളിലെയും ഡീസലിലെയും ജൈവ ഇന്ധന മിശ്രിതത്തിന്റെ അനുപാതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചുവരികയാ ണെന്നും മോദി പറഞ്ഞു ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഉപയോഗത്തിലൂടെ ഗതാഗത മേഖലയെ ഹരിതാഭമാക്കാൻ ഇന്തൃക്ക് പദ്ധതിയുണ്ടെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്ന് കേരളത്തിൽ കോട്ട ക്ക ൽ ആര്യ വൈദ്യ ശാല സ്ഥാപകൻ പി

ആയിരത്തിലേറെ പേർക്ക് ഇരിക്കാവുന്ന പന്തലും വേദിയും ചടങ്ങിനായി ഒരുക്കിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗമായിരിക്കും ഉപരാഷ്ട്രപതി കോട്ടക്കലിൽ എത്തുക ഇതേ തുടർന്ന് എയർപോർട്ട് കൊട്ടപ്പുറം പള്ളിക്കൽബസാർ കാക്കഞ്ചേരി കോട്ടക്കൽ റോഡുക ളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി

എന്നാൽ അവസാന കണ ക്കുകൾ വരുമ്പോൾ ഇതിൽ നേരിയ മാറ്റം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ

അന്ന് കെ

മാണി ഇടത് സ്ഥാനാർത്ഥി മാണി

യുഡിഎഫിലെ കക്ഷി രഹിത സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നേലും ഇടത് മുന്നണിയുടെ എൻസിപി നേതാവ് മാണി

കാപ്പനും എൻഡിഎ യുടെ എൻ ഹ രിയുമായിരുന്നു മത്സര രംഗത്തെ പ്രമുഖർ

സംസ്ഥാനത്ത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും എൽഡിഎഫ് യോഗം ഉച്ചക്ക് ശേഷവും തിരുവനന്തപുരത്ത് ചേരും രാവിലെ പാണക്കാട്ട് ചേരുന്ന യോഗത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർഥിയെ പ്രഖ്യാപിച്ചേക്കും വൈകീട്ട് ആറിന് എൻഡിഎ നേതൃയോഗം കൊച്ചിയിലും ചേരുന്നുണ്ട് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് അഗ്രോപാർക്കുകൾ സുപ്രധാന കാൽവയ്പ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു തൃശ്ശൂർ കണ്ണാറ മാതൃകാ ഹോർട്ടികൾച്ചർ ഫാമിൽ ബനാന ആൻഡ് ഹണി പാർക്കിന് തറക്കല്ലിടുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നാളികേര ഉത്പാദനം വർധിപ്പിക്കാൻ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിവരുന്നതായും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച അഞ്ച് അഗ്രോ പാർക്കുകളിൽ ആദ്യത്തെ പാർക്കാണ് കണ്ണാറയിൽ സ്ഥാപിക്കുന്നത് കോഴിക്കോട് എലത്തൂരിൽ ഓട്ടോ ഡ്രൈവറുടെ മരണത്തിനിട യാക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

സംഭവത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു

കേന്ദ്ര ധനകാര്യ സെക്രട്ടറി രാജീവ് കുമാറുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് പൊതുമേഖലാ ബാങ്കുകളുടെ ലയന നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ബാങ്ക് ജീവനക്കാരുടെ നാല് യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ബാങ്ക് ലയനത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ധനകാര്യ സെക്രട്ടറി ഉറപ്പ് നൽകിയതായി സംഘടനകൾ അറിയിച്ചു മരട് നഗരസഭയുടെ ഒഴിപ്പിക്കൽ നോട്ടീസിനെതിരെ ഫ്ളാറ്റ് ഉടമ കൾ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കും നഗര സഭയുടെ നോട്ടീസ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് ഹൈക്കോ ടതിയിൽ ഹർജി നൽകിയത് ഫിഫയുടെ മികച്ച ലോക ഫുട്ബോളറായി വീണ്ടും അർജന്റീനി യൻ താരം ലയണൽ മെസ്സിയെ തെരഞ്ഞെടുത്തു ആറാം തവണ യാണ് മെസ്സി ഈ അംഗീകാരത്തിന് അർഹനാകുന്നത് അമേരിക്കൻ താരം മേഗൻ റെപ്പിനോ യെ മികച്ച വനിതാ താരമായും ലിവർപൂ ളിന്റെ അലിസൺ ബക്കറിനെ മികച്ച ഗോൾക്കീപ്പറായും തെരഞ്ഞെ ടുത്തു ജുർഗൻ ക്ലോപ്പാണ് മികച്ച പരിശീലകൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖൃത്തിൽ പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കന്റി സ്കൂളിൽ തുടങ്ങിയ ബോക്സിങ്ങ് അക്കാദമി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നാടിന് സമർപ്പിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കന്ററി വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീ ലനം നൽകി രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയാണ് അക്കാ ദമിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി വൃക്തമാക്കി

ഇതിനായി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തലശ്ശേരി ചൊക്കി ഗവൺമെന്റ് കോളേജിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി

അടുത്ത വർഷങ്ങളിൽ എഞ്ചിനിയറിങ്ങ് പരീക്ഷ കളും ഓൺലൈനായി നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന തായും മന്ത്രി അറിയിച്ചു

ശൈ ലജ കോഴിക്കോട്ട് പറഞ്ഞു മെഡിക്കൽ കോളജിൽ ലെവൽ ഒന്ന് നിലവാരത്തിൽ ട്രോമാകെയർ യൂണിറ്റ് ആരംഭിക്കും

നിപ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് തയാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച മന്ത്രി സിസ്റ്റർ ലിനിയുടെ കുടുംബത്തെ സന്ദർശിച്ചു അശ്വമേധം കുഷ്ഠരോഗ നിയന്ത്രണ പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഫ്ളാഗ്ഓഫും കെ

ശൈലജ നിർവഹിച്ചു സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റുകൾക്കായി നാറ്റ്പാക്ക് സംഘടിപ്പി ക്കുന്ന റോഡ് സുരക്ഷാ അവബോധ പരിപാടി രാവിലെ കോഴിക്കോട് കുന്ദമംഗലത്ത് മന്ത്രി എ

വെളുത്തുള്ളിമേള കാർഷിക വിള പ്രദർശനം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ശീതകാല പച്ചക്കറി വിപണന കേന്ദ്രം പരിശീലന കേന്ദ്രം എന്നിവ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തി യിട്ടുണ്ട് കോഴിക്കോട്ടെ നോർക്കാ റീജിയണൽ ഓഫീസ് മന്ത്രി എ

അതിനുശേഷം കേരളാ ഗവൺമെന്റ് നേഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന ത്തിന്റെ പൊതു സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അനർട്ടിന്റെ മാതൃകാ പദ്ധതിയായ സൌരോർജ്ജ ശീത സംഭരണി രാവിലെ കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് സുഭിക്ഷ നാളികേര ഉൽപ്പാ ദക കേന്ദ്രത്തിൽ മന്ത്രി ടി

അഞ്ച് ടൺ നാളികേരവും അനുബന്ധ ഉൽപ്പന്നങ്ങളും സംഭരണി യിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും സൌരോർജ്ജ പാനലു കൾ വഴിയാണ് ഇതിനാവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഉല്ലാസ ഗണിതം പദ്ധതി മന്ത്രി കെ

പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്രശിക്ഷ കേരളയുടെ കീഴിൽ ഒന്ന് രണ്ട് ക്ലാസുക ളിലെ വിദ്യാർത്ഥികൾക്കായാണ് ഉല്ലാസ് ഗുണിതം ഗണിത പഠന പരി പോഷണ പരിപാടി നടപ്പാക്കുന്നത് കോഴിക്കോട് കല്ലായി പാലത്തിന് സമീപം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർ മരിച്ചു തൃശൂർ ചെറുതുരുത്തി സ്വദേശി അബ്ദുൾ ലത്തീഫ് ഭാരൃ ഫാദിയ എന്നിവരാണ് മരിച്ചത്

ഇടുക്കി ജില്ലയിലെ ആദ്യ ആധുനിക സ്പോർട്സ് ഇൻഡോർ സ്റ്റേഡിയം മുരിക്കാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു

വൃാഴാഴ്ച്ച ആരംഭിക്കുന്ന ദേശീയ ക്ലാസിക് പവർ ലിഫ്റ്റിങ്ങ് ചാമ്പ്യൻഷിപ്പ് ഈ സ്റ്റേഡിയത്തിലായിരിക്കും വയനാട് സമ്പൂർണ ആദിവാസി സാക്ഷരതാ പദ്ധതി ജില്ലയിലെ ശേഷിക്കുന്ന മുഴുവൻ ആദിവാസി ഊരുകളിലേക്കും വ്യാപിപിക്കാൻ തീരുമാനിച്ചു ആദ്യ രണ്ട് ഘട്ടങ്ങൾ വിജയിച്ചതിനെ തുടർന്നാണ് അടുത്ത ഘട്ടം നടപ്പാക്കുന്നത്

തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഒക്ടോബർ നാലുമുതൽ എട്ടുവരെ ആഘോഷിക്കും